ത സമവായമുണ്ടായാൽ മാത്രം അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്ന് മന്ത്രി എം എം മണി

ഇരിട്ടി പയഞ്ചേരി സ്വദേശി പി

ഒ ശശിധരൻ

കൊല്ലം ഇടുക്കി എറണാകുളം വയനാട് കണ്ണൂർ ജില്ലകളിൽ നാലുപേർക്ക് വീതവും പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മൂന്നുപേർക്ക് വീതവും ആലപ്പുഴയിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥികീരിച്ചത്

അഞ്ചുപേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച തൃശൂരിൽ മരിച്ച കുമാരന് സാമ്പിൾ പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

തെന്മല ഗ്രാമ പഞ്ചായത്തിനെ ഹോട്ട്സ്പോട്ട് നിയന്ത്രണത്തിൽനിന്നും ഒഴിവാക്കി കുളത്തൂപ്പുഴ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിൽ ഹോട്ട്സ്പോട്ട് നിയന്ത്രണങ്ങൾ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന വാർഡുകളിൽ മാത്രമായി ചുരുക്കി

വിദേശ കമ്പനികളായ ഫ്ളൈ ദുബായ് സലാല എയർ ഒമാൻഎയർ എന്നീ വിദേശ കമ്പനികളും കണ്ണൂരിൽ വിമാനമിറക്കാൻ അനുമതി തേടിയിട്ടുണ്ട് രേര പ്രവാസികളുമായി കൊച്ചി വിമാനത്താവളത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ അഞ്ച് വിമാനങ്ങൾ ഇന്നലെയെത്തി ഷാർജ ദുബായ് റിയാദ് ജിദ്ദ സലാല എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു സർവ്വീസുകൾ ഇന്ന് കുവൈത്തിൽനിന്നും അബുദാബിയിൽ നിന്നും വിമാനങ്ങൾ വരും

ത്യശൂർ മുതൽ കാസർകോട് വരെ ഏഴ് ജില്ലകളിലെ സർവേ കോഴിക്കോട് എൻ

ഒയാണ് നടത്തുന്നത് രുമ കോവിഡ് രോഗികൾക്കായി തൃശൂർ ഗവ

രുമ കോവിഡ് സാഹചര്യത്തിലെ ശബരിമല പ്രവേശനം സംബന്ധിച്ച വിഷയത്തിൽ തീരുമാനമെടുക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങളും തന്ത്രിമാരും രാവിലെ ചർച്ച നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശത്തെത്തുടർന്നാണ് നടപടി മിഥുന മാസ പൂജകൾക്ക് നട തുറക്കുമ്പോൾ ശബരിമലയിൽ അനുവദിക്കരുതെന്നും തീർത്ഥാടകരെ ഉത്സവം മാറ്റിവെയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ സന്നിധാനത്ത് ഭക്തജന സാന്നിധ്യം ഒഴിവാക്കണമെന്നാണ് ദേവസ്വം കമ്മീഷണർക്ക് നൽകിയ കത്തിൽ തന്ത്രി ആവശ്യപ്പെട്ടത് തന്ത്രിയുടെ നിലപാട് സ്വാഗതാർഹമാണെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി കോഴിക്കോട്ട് അറിയിച്ചു

ഭക്തർക്ക് വഴിപാടുകൾ ദേവസ്വം അക്കൌണ്ടിൽ പണമടച്ച് ഓൺലൈനായി നടത്താം വഴിപാട് നടത്തുന്നവർക്കോ മറ്റ് ഭക്തർക്കോ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കില്ല

രാത്രി പത്തു മണിയോടെ ട്രെയിൻ യാത്ര തിരിച്ചു

പദ്ധതി ഉപേക്ഷിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉൾപ്പെടെ എല്ലാ അനുമതികളും അതിരപ്പള്ളി പദ്ധതിയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്നും കാലാവധി തീരുന്നതിനാൽ അവ പുതുക്കാൻ മാത്രമാണ് കെ എസ്

ബിയ്ക്ക് അനുമതി നൽകിയതെന്നും മന്ത്രി വിശദീകരിച്ചു ഇത് സാധാരണ നടപടിക്രമം മാത്രമാണ്

രുമ തനത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ മാത്രമേ മികച്ച ഭരണം നടപ്പാക്കാനാവൂ എന്നും ഗവൺമെന്റ് സാങ്കേതിക വിദ്യയ്ക്ക് ഊന്നൽ നൽകുന്നത് അതുകൊണ്ടാണെന്നും കേന്ദ്രമന്ത്രി നിതിൽ ഗഡ്കരി അറിയിച്ചു രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റ് മികച്ച ഭരണത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്നും മധ്യപ്രദേശിലെ ബി ജെ പി വിർച്വൽ റാലിയിൽ ഗഡ്കരി പറഞ്ഞു രുമ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ പ്രാരംഭ നടപടികൾ ഇന്ന് ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീപദ് യെശോ നായിക് അറിയിച്ചു കോവിഡ് സാഹചര്യത്തിൽ ഈ വർഷം നേരത്തെ തീരുമാനിച്ചതുപോലെ വിപുലമായ പരിപാടികൾ ഉണ്ടാവില്ല

രദേ ജമ്മു കശ്മീരിലെ ബദ്ഗാം ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകര പ്രവർത്തകരുമായി ഏറ്റുമുട്ടൽ നടക്കുകയാണ് പുലർച്ചെ തെരച്ചിലിനെത്തിയ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരർ വെടിവെയ്ക്കുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല

എസ് എസ് പ്രചാരകനും ബി എം എസ് മുൻ ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ ആർ വേണുഗോപാൽ കൊച്ചിയിൽ നിര്യാതനായി

കണ്ണൂർ ജില്ലയിൽ ഇന്നുമുതൽ വർദ്ധിപ്പിച്ച ബസ് ചാർജ് ഈടാക്കി സർവീസ് നടത്തുമെന്ന് ജില്ലാ ബസ് ഓപ്പറേറ്റേർസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രകാരം സാമൂഹിക അകലം പാലിച്ച് മാത്രമേ സർവീസ് നടത്തൂ എന്നും അവർ അറിയിച്ചു രുമ മലങ്കര ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി ഇന്ന് രാവിലെ ഡാമിന്റെ ആറ് ഷട്ടറുകളും ഘട്ടങ്ങളായി ഉയർത്തും തൊടുപുഴ മുവാറ്റുപുഴയാറുകളുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു ദരദ കൊല്ലം പത്തനാപുരത്ത് രണ്ടുമാസം മുമ്പ് കാട്ടാന ചെരിഞ്ഞത് പന്നിപ്പടക്കം കടിച്ചാണെന്ന് വനംവകുപ്പ് കണ്ടെത്തി

രുര ഹൃദയാഘാതത്തെ തുടർന്ന് ഗൾഫിൽ മരിച്ച സാമൂഹ്യ പ്രവർത്തകൻ പേരാമ്പ്ര സ്വദേശി നിതിൻ ചന്ദ്രന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു